ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ് എസ് സി എസ്

നെയും വഹിച്ചുകൊണ്ട് പി എസ് എൽ

സിന്ധു ഇന്നിറങ്ങും

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുക

ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ലൈസൻസുള്ള ആയുധങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇതുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്കുള്ളൂ പിഴ വർദ്ധിപ്പിക്കാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു

രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഏറെക്കാലമായി വിവേചനം നേരിടുണ്ടെന്നും അതിനാലാണ് സംവരണം ദീർഘിപ്പിച്ചതെന്നും കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകി സംവരണം ദീർഘിപ്പിക്കുന്നതിലൂടെ അവഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗത്തിൽ നിന്ന് നേതൃനിരയിലേക്ക് ഒരു പുതിയ സമൂഹം ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ക്കിടയിൽ ക്രീമി ലെയർ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി വൃക്തമാക്കി നീതിന്യായ വ്യവസ്ഥയിൽ ഈ വിഭാഗങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന നടപടികൾ സുപ്രീംകോടതിയുമായി ചേർന്ന് ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ടെന്നും ശ്രീ

നിലവിലുള്ള സ്ഥിതി തുടരാനാണ് ഇപ്പോഴുള്ള തീരുമാനമെന്ന് ജലശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് രാജ്യസഭയിൽ അറിയിച്ചു ജല ദൌർലഭ്യം തടയുന്നതിനുള്ള ദേശീയ ജലസേചന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ജലത്തെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻഡ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം

ജലദൌർലഭ്യം പരിഹരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

എസ് എൽ

ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ ്രിക്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന പി

വിദേശരാജ്യങ്ങളുടെ ഒമ്പത് ഉപഗ്രഹങ്ങളും ഇതിനൊപ്പം ്രവിക്ഷേപിക്കുന്നുണ്ട്

വിക്ഷേപണത്തിനായുള്ള കൌണ്ട് ഡൌൺ ഇന്നലെ വൈകിട്ട് ആരംഭിച്ചിരുന്നു

എസ് എൽ

റിസാറ്റിനെ കൂടാതെ ഇസ്രായേൽ ഇറ്റലി ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വാണിജ്യ ഉപഗ്രഹങ്ങളും പി

എസ് ആർ ഒ യുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പെയ്സ് ഇന്ത്യാ ലിമിറ്റഡുമായുള്ള കരാർ പ്രകാരമാണ് വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

റാഞ്ചി ഹസാരിബാഗ് ഗിരിദിഹ് ബൊക്കാറോ ഛത്ര റാംഗർഹ് സരായ്കേല ഖർസവാൻ കൊഡേർമ എന്നീ ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്

പുതിയ നിയമം അനുസരിച്ച് ഒരേ സർക്കിളിലെ ഒരു നെറ്റ്വർക്കിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നതിന് മൂന്നു ദിവസം മതിയാകും അതേസമയം മറ്റൊരു സർക്കിളിൽന്ന്നിന്ന് മാറ്റുന്നതിനായി അഞ്ച് പ്രവൃത്തി ദിവസങ്ങളാണ് വേണ്ടിവരിക

കോർപ്പറേറ്റ് മൊബ്രൈൽ കണ്ക്ഷനുകൾ മാറുന്നതിനുള്ള സമയപരിധിയിൽ മാറ്റമില്ല

പ്പുതിയുകെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പാലക്കാട് സപ്പൈകോ പീപ്പിൾസ് ബസാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൻകിട കച്ചവടക്കാരോട് കിടപിടിക്കുന്ന രീതിയിലാണ് പീപ്പിൾ ബസാറുകൾ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി അറിയിച്ചു അട്ടപ്പാടി മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിച്ച് റേഷൻ വിതരണത്തിൽ ചാമ റാഗി എന്നിവ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി

മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ ചിത്രം ലിഹാഫയുടെ ആദ്യ പ്രദർശനവും ഇന്നുണ്ടാവും

അധികാര ദൂർവിന്റിയോഗത്തിനും യു

കോൺഗ്രസ്സിനെ തടസ്സപ്പെടുത്തിയതിനുമാണ് ട്രംപ്പിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുസ്സ്ക്ക് ഉള്ള്ക് നാഡ്ലർ വ്യക്തമാക്കി

എഫ് ലോക് പര്യടന ഫൈനൽസിന്റെ സീസണിലെ അവസാന മൽസരത്തിൽ ഇന്ത്യൻ താരം പി

ജപ്പാന്റെ അക്വിനേ യാമാഗൂച്ചിയുമായാണ് സിന്ധുവിന്റെ ഇന്നത്തെ മൽസരം സിംഗിൾസ് ഇനങ്ങളിൽ സൈന നെഹ്വാൾ കിഡംബി ശ്രീകാന്ത് പി കശ്യപ് ബി സായ്പ്രണീത് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്